വിട്ടുവീഴ്ചയില്ലെന്ന് പ്രധാനമന്ത്രി

കുറിച്ച് ന്യൂഡൽഹിയില്ല വിജയ്ചൌക്കിൽ ഇന്ന് ബീറ്റിംഗ് ദ റിട്രീറ്റ്

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ

ഏകദിനം ഇന്ന്

ന്യൂഡൽഹിയിലെ തൽക്കത്തോര സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ രാജൃത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും

ഒപ്പം അധ്യാപകരും രക്ഷാകർത്താക്കളും സംവാദത്തിൽ പങ്കുചേരും കഴിഞ്ഞ കർഷം ഡൽഹിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു സംവാദത്തിൽ പങ്കെടുത്തത് ഇതാദ്യമായി രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളും വിദ്യേൾത്ത് പഠിക്കുന്ന കുട്ടികളും ചർച്ചയിൽ പങ്കെടുക്കും റഷ്യ നൈജ്ടീരീയ് ഇറാൻ നേപ്പാൾ ദോഹ കൂവൈറ്റ് സൌദി അറേബ്യ സിംഗ്ലപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഈ ്വർഷ് സംവാദത്തിൽ പങ്കാളികളാകും കഴിഞ്ഞ വർഷത്തെ ചർച്ചിയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾക്ക് അനുസൃതമായി മാനവപ്പിട്ടവ്ശേഷി മന്ത്രാലയം സ്വീകരിച്ച നടപടികളെ കുറിച്ചുള്ള ഒരു ഹ്രസ്ഥിത്ര്വും ചർച്ചയിൽ പ്രദർശിപ്പിക്കും പത്തുമിനിട്ട് ദൈർഘൃമുള്ള ഒരു സാംസ്കാരിക പരിപാടിയും ചർച്ചയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്

ആകാശവാണിയും ദൂരദർശനും പരിപാടി തൽസമയം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്

എ

ബി എസ് ഇ സ്കൂളുകളിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ പരിപാടി വീക്ഷിക്കും

ന്യൂഡൽഹിയിൽ ഇന്നലെ എൻ

സി റിപ്പബ്ലിക് ദിനക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് സൈന്യം തക്കതായ തിരിച്ചടി നല്കുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷം രാജ്യ സുരക്ഷ സംബന്ധിച്ച് നിരവധി പ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു രാജ്യം സുരക്ഷിതമാണെങ്കിൽ മാത്രമേ യുവാക്കൾക്ക് വരുടെ സ്വപ്നം സാക്ഷാത്ക്കരിക്കാൻ സാധിക്കൂ എല്ലാവിധ തെറ്റായ പവണതകളിൽ നിന്നും മാറി നിന്ന് സ്വന്തം പുരോഗതിക്കും ഒപ്പം രാജ്യ വികസനത്തിനും പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി എൻ

സീപ്പു കേഡറ്റുകളെ ആഹ്വാനം ചെയ്തു

ഇന്ത്യൻ സ്റ്റാർ പഹരോൻകി റാണി ജയ് ജനം ഭൂമി ക്യൂൻ ഓഫ് സത്പുര ആകാശഗംഗ നമസ്തേ ഇന്ത്യ എന്നിവയടക്കം അവതരിപ്പിക്കും

നാവിക സേനയുടെയും വ്യോമസേനയുടെയും സംസ്ഥാന പോലീസ് സേനയുടേയും പങ്കാളിത്തവും ഉണ്ടാകും

ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന ബാങ്ക് മേധാവികളുടെ യോഗം സംബന്ധിച്ച വിശദാംശങ്ങളുമായി സുരേഷ്

എല്ലാ ബാങ്കുകളും അവർക്ക് ലഭ്യമായ നേട്ടങ്ങൾ നിലനിർത്തി സുസ്ഥിരവും കൂടുതൽ ഗുണകരവുമായ സേവിക്കും നൽകാൻ മുൻതൂക്കം നൽകണമെന്ന് ശ്രീ

ബാങ്കുകൾക്കായി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ച പിഴവുതിരുത്തൽ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു നേരത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസും ബാങ്ക് മേധാവികളുമായി ആശയവിനിമയം നടത്തി പ്രോത്സാഹനം നൽകണമെന്നും ആർ

ഐ ഗവർണർ നിർദ്ദേശിച്ചു

തീരുമാനം ഉടൻ പ്രാബലൃത്തിൽ വരുത്താൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നിർദ്ദേ ശിച്ചു

സമ്മേളനത്തിന് ശേഷം ഗസ്റ്റ് ഹൌസിൽ യുഡി എഫ് നേതാക്കളുമായി അദ്ദേഹം തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് അനൌപചാരിക ചർച്ച നടത്തും

രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പ്രമാണിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

മത്സരം വിജയിക്കാൻ കഴിഞ്ഞാൽ ഐ

സി വനിതാ പരമ്പരയിലെ തോൽവിക്കുള്ള ഇന്ത്യയുടെ പകരംവീട്ടലാകും

താലിബാൻ പ്രതിനിധികളെ അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഘനി ചർച്ചയ്ക്ക് ക്ഷണിച്ചത് പ്രതീക്ഷാപൂർവ്വമാണ് ലോകം ഉറ്റു നോക്കുന്നത് ഒരു റിപ്പോർട്ട്

ദോഹയിൽ നടത്തിയ ചർച്ചയ്ക്കിടെ സമാധാന ശ്രമങ്ങളുമായി പൂർണ്ണ മായി സഹകരിക്കാമെന്ന് താലിബാൻ നേതാക്കൾ അമേരിക്കയെ അറിയി ച്ചിരുന്നു രക്തച്ചൊരിച്ചിൽഅവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചുവെ ന്നാണ് പൊതുവെ വിലയിരുത്തലുണ്ടായത് അൽക്യ്ദ പോലുള്ള സംഘടനകൾക്ക് ഒളിത്താവളം നൽകരുതെന്ന് താലിബാനോട് നിർദ്ദേശിച്ചു

താലിബാനുമായി സമാധാന ചർച്ചകൾ വിജയിച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ പൂർണ്ണമായ സമാധാനം പുലർത്താനാവുമെന്നാണ് ചർച്ചയിൽ ധാരണ യായത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചിനാബ് നദീതടത്തിലെ ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനാണ് സംഘം എത്തിയത്

രണ്ടു ദിവസമാണ് ഈ മേഖലയിൽ സംഘം പര്യട്ടനും നൂടത്തുക

അസം ഗണ പരിഷത്ത് വിളിച്ചുചേർത്ത യോഗത്തിൽ മേഘാലയ മിസോറാം മൂഖ്യമന്ത്രിമാർ പങ്കെടുക്കും അതിനിടെ രാജ്യസഭയിൽ ബില്ലിനെ എതിർക്കുമെന്ന് ജെ

ഗുവാഹത്തിയിൽ ഇന്നലെ അസം ഗണ പരിഷത്തിന്റെ മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ജെ

യു നിലപാട് വൃക്തമാക്കിയത് ബംഗ്ലാദേശിൽ നിന്ന് ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് പൌരത്വം നൽകുന്നതിനും ബിൽ നിർദ്ദേശിക്കുന്നു

ആദ്യമായാണ് ലക്നൌവിനു പുറത്ത് സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേരുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അധൃക്ഷനാവും

ജനങ്ങളിൽ ശരിയായ ഭക്ഷണ ശീലം വളർത്തുക എന്ന ലക്ഷ്യവുമായി കഴിഞ്ഞ ആഗോള ഭക്ഷ്യ ദിനത്തിലാണ് സൈക്ലത്തോണിന് തുടക്കം കുറിച്ചത്

സമാപന ചടങ്ങുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും